പാസായി ലിംഗ നീതിയും സമത്വവും ഉറപ്പാക്കുന്നതാണ് ബില്ലെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്

മധ്യപ്രദേശിൽ വെള്ളപ്പൊക്കം രൂക്ഷം ഹൈവേകൾ അടച്ചിട്ടു

മുത്തലാഖ് ചൊല്പിയാൽ മൂന്ന് വർഷംവരെ തടവും പിഴയും എന്നു ശിക്ഷ ബില്ലിൽ ഉറപ്പ് വരുത്തുന്നു മുസ്തീം വനിതകൾക്ക് സാമൂഹിക നീതിയും അന്തസ്സും ലിംഗ സമത്വവും ഉറപ്പി പ്രൂത്താൻ ലക്ഷ്യമിടുന്നതാണ് മുത്തലാഖ് ബില്ലെന്ന് ്ട് തിയമ്മന്ത്രി രവിശങ്കർ പ്രസാദ് രാജ്യസഭയിൽ പറഞ്ഞു മുത്തലാഖിനെതിരെ സുപ്രീം കോടതിയുടെ നിർദ്ദേശ്മുണ്ടെങ്കിലും അത് അവഗണിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുത്തലാഖ് ഇപ്പോഴും തുടരുന്നതായും നിയമമന്ത്രി സഭയിൽ പറഞ്ഞു ബില്ല് ഏതെങ്കിലുമൊരു വിഭാഗത്തിനൊ മതത്തിനൊ എതിരല്ലെന്നും ബില്ലിനെ രാഷ്ട്രീയമായി കാണരുതെന്ന് അദ്ദേഹം വ്യക്തമാക്കി മുസ്ത്രീം മത വിഭാഗങ്ങൾക്കിടയിലെ കുടുംബ ബന്ധങ്ങളെ ലക്ഷ്യമിടുന്നതാണ് ബില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാംനബി ആസാദ് ആരോപിച്ചു

നിരവധി ചട്ടങ്ങളുടെ ലഘൂകരണവും ബിൽ ലക്ഷ്യമിടുന്നതായി ബിൽ അവതരിപ്പിച്ച ഉപഭോക്തൃകാരൃ സഹമന്ത്രി റാവു സാഹേബ് പാട്ടിൽ ദൻവെ പറഞ്ഞു ബിൽ പാസാക്കുന്നതോടെ ഉപഭോക്താക്കൾക്ക് വേഗത്തിൽ ലഭ്യമാകും ബിൽ ആധികാരികമാണെന്ന് നീതി ബിലിന്റെ ചർച്ചയ്ക്കിടെ ബിജെപി അംഗം രാജേന്ദ്ര അഗർവാൾ പറഞ്ഞു ഇലക്ട്രോണിക് വ്യാപാരം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉപഭോക്താക്കൾ എളുപ്പത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉപഭോക്താവിന് ശക്തമായ പ്രതിരോധം തീർക്കുന്നതാണ് ബില്ലെന്ന് തൃണമുൽ കോൺഗ്രസംഗം പ്രതിമ മൊൻഡേൻ പറഞ്ഞു ഇലക്ട്രോണിക് വ്യാപാരത്തെ ബില്ലിന് കീഴിൽ കൊണ്ടുവരാൻ ഇനിയും മുന്നേറേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു ന്യൂസ് ഡസ്ക് ആകാശവാണി

വ്യവസായം വാണിജ്ച്ച്ച്മിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ വേതനവും ബോണസും നല്കുന്നത് ക്രമവൽക്കരിക്കാൻ നിയമം ലക്ഷ്യമിട്ടുള്ളതാണ് ഇതനുസരിച്ച് ജീവിതനിലവാരാധിഷ്ഠിതമായ അടിസ്ഥാന വേതനം കേന്ദ്രഗവണ്മെന്റ് നിശ്ചയിക്കും

ദിനേഷ് ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ സംഘത്തോടൊപ്പം പെൺകുട്ടി ചികിത്സയിൽ ഇരിക്കുന്ന കിംഗ് ജോർജ്ജ് മെഡിക്കൽ കോളേജിലെത്തി ഇരയുടെ കൂടുംബത്തെ കണ്ടു അതേസമയം റായ്ബെറേലി ജയിലിലുള്ള ഇരയുടെ കുടുംബ ബന്ധുവിനെ പരോളിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം രാവിലെ മുതൽ സമരത്തിലാണെന്ന് ആകാശവാണി പ്രതിനിധി അറിയിച്ചു

രാഷ്ട്രപതിയുടെ സന്ദർശനം ഇന്ത്യാ ബെനിൻ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ മാനങ്ങൾ നൽകിയതായി ഇന്ത്യൻ സാമ്പത്തികകാര്യ സെക്രട്ടറി ടി

വി വാഹനങ്ങൾ മൊസാംബിക് ആഭ്യന്തരമന്ത്രിക്ക് ശ്രീ

ഇന്ത്യയുടെ സഹായത്തിന് മൊസാംബിക് ആഭ്യന്തര മന്ത്രി നന്ദി അറിയിച്ചു മൊസാംബിക് പ്രധാനമന്ത്രി കാർലോസ് അഗസ്റ്റിൻ ഹൊദോ റൊസാരിയോയേ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ സന്ദർശിച്ചിരുന്നു ഇദൈ ചുഴലിക്കാറ്റ് ബാധിച്ച മൊസാംബിക്കിന് സമയബന്ധിതമായി സഹായം നൽക്കിയിട്ട് ഇന്ത്യയുടെ നടപടിക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു

വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഭോപ്പാൽ ബേയ്ത്തൂൽ ഹൈവേ അടച്ചു

വിദർഭ നാസിക് കോലാപൂർ എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സമാനമായ സ്ഥിതിയാണ്

തെക്കൻ കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ബിജ്ബെഹ്റ പ്രവിശ്യയിലാണ് സംഭവം ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരസംഘത്തിന്റെ കമാൻഡർ ഫയാസ് പൻസൂവും കൊല്ലപ്പെട്ട ഭീകരിൽ ഉൾപ്പെടുന്നു കൊല്ലപ്പെട്ട മറ്റൊരു ഭീകരനെ തിരിച്ചറിഞ്ഞിട്ടില്ല

ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു

ജമ്മു ജില്ലയിലെ തെഹ്സിൽ അഖ്നൂർ സേനയിലെ പ്ത്നായിക് കൃഷ്ണൻ ലാലാണ് വീരമൃത്യു വരിച്ചത്

കേന്ദ്ര മനുഷ്യവിഭവശേഷി വികസന മന്ത്രി രമേഷ് പൊഖ്രിയാൽനിഷങ്കും പെട്രോളിയം പ്രകൃതിവാതക ഉരുക്ക് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്യും നവീന ആശയങ്ങൾ രൂപപ്പെടാനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ രാജ്യത്തെമ്പാടും ഒരുപോലെ ലഭ്യമാകുന്നുവെന്ന് ഉറപ്പ് വരുത്തുകയും അതുവഴി നവീന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം മെട്രോ നഗരങ്ങൾ സ്മാർട്ട്സിറ്റികൾ വികസനം ആഗ്രഹിക്കുന്ന ജില്ലകൾ വടക്ക് കിഴക്കുന്നു മേഖല ജമ്മുകാശ്മീർ എന്നിവയോടൊപ്പം ഗ്രാമീണഗിരൂവ്ർഗ്ഗ് ് മേഖലകളിലും പദ്ധതി നടപ്പാക്കും

ടി

ഡബിൾസിൽ ഇന്ത്യൻ ജോഡികളായ ജീവൻ നെടുഞ്ചേഴിയനും പുരവ് രാജയും ആദ്യ റൌണ്ടിൽ പരാജയപ്പെട്ടു

പുരുഷ സിംഗിൾസ് വിഭാഗത്തിലെ ഒന്നാം യോഗ്യതാ മത്സരത്തിൽ സൌരവ് തായ്ലാന്റിന്റെ കന്റവാട്ടിനേയും രണ്ടാം മത്സരത്തിൽ ചൈനയുടെ ഷാവു സീ കിയെയും പരാജയപ്പെടുത്തി വനിതാ സിംഗിൾസിൽ കാനഡയുടെ റ്റാം ബ്രിറ്റ്നെയെ തോല്പിച്ചാണ് ഉത്തേജിത റാവു മത്സരത്തിന് യോഗ്യത നേടിയത്

രാജ്യസഭാഗത്വവും അദ്ദേഹം രാജി വച്ചു രാജ്യസഭാ അദ്ധ്യക്ഷൻ എം വെങ്കയ്യനായിഡു രാജി സ്വീകരിച്ചു നാളെ സജ്ഞയ് സിംഗ് ബിജെപിയിൽ ചേരും

ശീതകാലത്ത് അന്തരീക്ഷത്തിൽ ഖര ദ്രാവക കണികകൾ കലർന്നുണ്ടാകുന്ന മലിനീകരണം മുൻകൂട്ടി അറിയാനും മലിനീകരണ നിയന്ത്രണ നടപടികൾ മുൻകൂട്ടിതന്നെ സ്വീകരിക്കാനും ഈ സംവിധാനും പ്രപ്പിയോജനപ്പെടുമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്